അതിർത്തിയിൽ ചൈന പ്രകോപനപരമായ നടപടികൾ സ്വീകരിക്കുന്നതായി ഇന്ത്യ സൈനികപരമായും നയതന്ത്രപരമായും നേരിടുമെന്ന് മുന്നറിയിപ്പ്

പ്രപഞ്ചത്തിലെ ഏറ്റവും അകലെയുള്ള നക്ഷത്ര സമൂഹത്തിലൊന്നിനെ കണ്ടെത്തി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അഭിമാനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിങ്

ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ലളിതമായി നടക്കും

ഇന്നലെയും കമാൻഡർ തല ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ചൈനീസ് സൈന്യത്തിന്റെ പ്രകോപനപരമായ നടപടി തടയാനായത് ഇന്ത്യൻ സേനയുടെ സമയോചിതമായ നീക്കം കൊണ്ടാണെന്ന് ശ്രീ അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കി

ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ സംയുക്തസമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രതിരോധമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മൂന്നു ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ

റഷ്യൻ പ്രതിരോധ മന്ത്രി ജനറൽ ഷെർഗെയ് ഷൊയ്ഗുവുമായും ശ്രീ

ഇ ഒ

പല വിഷയങ്ങളിലും പരാതി ഉന്നയിച്ചിരുന്നെങ്കിലും ഫെയ്സ്ബുക്ക് മേധാവികൾ പ്രതികരിച്ചിരുന്നില്ലെന്നും ശ്രീ

രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നതിനും അരാജകത്വ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും കത്തിലൂടെ കേന്ദ്രമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു

ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ പൂനെയിലെ ആസ്ട്രോണമി ആന്റ് ആസ്ട്രോ ഫിസിക്സിലെ ഡോ കനക് സാഹയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തൽ നടത്തിയത്

വലിയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു നേരത്തെ യു

സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു

വിപണി തുറന്നിടുന്നതിനൊപ്പം വിവേചനരഹിതവും സുതാര്യവും സുസ്ഥിരവുമായ നിക്ഷേപ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ വാണിജ്യ മന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസിൽ മൂന്നു രാഷ്ട്രങ്ങളും പ്രതിജ്ഞയെടുത്തു

കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അധിക നിയന്ത്രണം ആവശ്യമെങ്കിൽ കലക്ടർമാർക്ക് അതിന് അധികാരം നൽകിയിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു

കേര ഉത്പന്നങ്ങളുടെ വർദ്ധന ഉത്പന്ന വൈവിദ്ധ്യവത്ക്കുർണം മൂല്യവർദ്ധന എന്നിങ്ങനെ കേര കർഷകരുടെ സാമ്പത്തിക് അടിത്തറ വികസിപ്പിക്കുന്നതിനായുള്ള പരിപാടികൾക്ക് ഊന്നൽ നല്കാനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്

പട്ടികയിൽ ഏതെങ്കിലും ഒന്നിൽ ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ മത്സരത്തിൽ ഒരു സംസ്ഥാനത്തേയോ രാജ്യത്തേയോ പ്രതിനിധീകരിച്ച കായിക താരങ്ങൾക്ക് ഗ്രൂപ്പ് സി ലെവൽ തസ്തികകളിലേക്ക് നിയമനത്തിനുള്ള അർഹത ലഭിക്കും നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ഡ്രൈവിന് കീഴിൽ ശാരീരിക കാര്യക്ഷമതയിൽ ദേശീയ അവാർഡുകൾ ലഭിച്ച കായികതാരങ്ങൾക്കും ഇത്തരം തസ്തികകളിലേക്ക് നിയമനം ലഭിക്കാൻ അർഹതയുണ്ട് ന്യൂസ്ഡസ്ക് ആകാശവാണി

അമേരിക്കയുടെ ബ്രാഡ്ലി ക്ലാനെയാണ് ഒന്നാം റൌണ്ടിൽ സുമിത് പരാജയപ്പെടുത്തിയത്

രണ്ടാം റൌണ്ടിൽ സുമിത് ഓസ്ട്രിയയുടെ ഡൊമനിക് തീമിനെ നേരിടും

ആദ്യ ്വർഷം ഫിറ്റ് ഇന്ത്യ പരിപാടിക്ക് ലഭിച്ച ജനപ്രിയത നില നിർത്തണമെങ്കിൽ കൂടുതൽ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി വാർഷിക ഉപദേശക സമിതി യോഗത്തിൽ അറിയിച്ചു

ലോക്സഭ സെക്രട്ടേറിയറ്റാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്

കോവിഡ് പശ്ചാത്തലത്തിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നത് അടക്കമുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എം

ഗ്യാലറികളിലും സാമൂഹിക അകലം പാലിച്ച് അംഗങ്ങൾക്ക് ഇരിപ്പിടം നൽകും

കോവിഡിന്റെ പശ്ചാത്തൽത്തിൽ ഘോഷയാത്രയുൾപ്പെടെയുള്ളവ ഒഴിവാക്കിയാണ് ശ്രീനാർായണഗുരു ജയന്തി ആഘോഷിക്കുന്നത്